ന്യൂഡൽഹി യിൽ ചേർന്ന കൊറോണ പ്രതിരോട്ട് മരുന്നിനെ സംബന്ധിച്ച കർമ്മസമിതി യോഗം പ്രതിരോപ്പ് ഔഷധത്തിന് പുറമെ കോവിഡിനുള്ള മരുന്ന് ര്റോഗ്ന്റിർണ്ണയം പരിശോധന എന്നീ കാര്യങ്ങളും അവലോകന്റു ചെയ്തു

രാജ്യത്തെ വിവിധ പരീക്ഷണ ശാലകളിലെ പ്രവർത്തനങ്ങളും സമിതി വിലയിരുത്തി പ്രതിരോധ ഔഷധ ഗവേഷണത്തിന് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരും വ്യവസായ മേഖലയും ഗവൺമെന്റും കൈകോർത്ത നടപടി ശ്രദ്ധേയമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

പരീക്ഷണശാലയിൽ മനുഷ്യ ശരീര കോശങ്ങളിൽ കൊറോണ വൈറസിനെ സന്നിവേശിപ്പിച്ച് പഠനങ്ങൾ നടത്താനും അതുവഴി വാക്സിൻ നിർമ്മാണം സാധ്യമാക്കാനുമാണ് ഗവേഷണ പ്രവർത്തനം നടത്തുക

ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾ വിസാ കാലാവധി കഴിഞ്ഞവർ ചിക്ടിത്സ ആവശ്യമുള്ളവർ ഗർഭിണികൾ പ്രായമായവർ തൂട്ടിങ്ങീയവർക്ക് മുൻഗണന ലഭിക്കും യാത്രാ ചെലവ് യാത്രിക്കാർ വഹിക്കണം

നാട്ടിൽ എത്തിയാൽ ഉടൻ എല്ലാവരും ആരോഗ്യ സേതു ആപ്പിൽ രജിസ്റ്റ്ർ ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് യാത്രയിലുടനീളം സാമൂഹിക അകലം കൃതൃമായും പാലിക്കണം

വീഡിയോ കോൺഫറൻസിംഗിലൂടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദേശരാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടു വരുന്നതിന് മാത്രമാണ് ഇപ്പോൾ വിമാനസർവ്വീസ് നടത്തുക

വിമാന ടിക്കറ്റ് നിരക്ക് യാത്രക്കാരിൽ നിന്നും ഇൌടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാ യാത്രക്കാരേയും സ്ക്രീനിംഗിന് വിധേയമാക്കും

സിംഗപ്പൂർ അമേരിക്ക ഫിലിപ്പൈൻസ് യു എ ഇ ഖത്തർ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെയാണ് ഇപ്പോൾ തിരികെ എത്തിക്കുന്നത്

എന്നാൽ ഇന്ധനത്തിന്റെ ചില്ലറ വിൽപ്പനവിലയിൽ മാറ്റമുണ്ടാവില്ല

ഉയർന്ന ജനസംഖ്യാ നീർക്ക് മൂലമാണ് ചെന്നൈയിൽ കൂടുതൽ രോഗബാധ ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി പറഞ്ഞു എല്ലാ കാർഡുടടമകൾക്കും അടുത്ത മാസവും സൌജന്യ റേഷൻ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ഇ ഇ

മൂന്ന് പേരും വയനാട് ജില്ലക്കാരാണ് സമ്പർക്കം മൂലമാണ് മൂവർക്കും രോഗബാധയുായത്

ഇയാളുടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും വാഹനത്തിലെ ക്സീനറുടെ മകനുമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ഇന്നലെ മൂന്നു ട്രെയിനുകൾ അതിഥി ത്രൊഴീലാളികളുമായി കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്

അതിർത്തി ചെക്ക് പോസ്റ്റുകൾ തുറക്കുകയും യാത്ര അനുവദിച്ചു തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ നോർക്കയിൽ ഇനി മുതൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല നോർക്കയിൽ മടക്കയാത്രാ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചുവർക്കും അല്ലാത്തവർക്കും ഡിജിറ്റൽ പാസിനായി പോർട്ടലിൽ അപേക്ഷിക്കാട്ട്

വീട് നിർമാണം ഉൾപ്പെടെയുള്ള സ്വകാര്യ നിർമാണ പ്രവർത്തനങ്ങൾക്ക് തടസമില്ലെന്നും മുഖൃമന്ത്രി അറിയിച്ചു

ഇതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്കും ജീവനക്കാർക്കും രോഗബാധ ഒഴിവാക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു

പ്രിപ്പാ്സികൾക്ക് നിരീക്ഷണത്തിൽ കഴിയുന്നതിനുള്ള സൌകൃത്യ്ങൾ ആറു താലൂക്കുകളിലായി ഒരുക്കിയിട്ടുണ്ട് ഗവൺ ്മെന്റ് മാർഗ്ഗനിർദ്ദേശങ്ങളനുസരിച്ച് ഇവർ നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും